നിൽക്കേ പ്രചാരണ ചൂടിൽ കേരളം

റോഡ് ഷോയിൽ പളങ്കടുത്തു

വോട്ടെടുപ്പിലെ പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം

ലക്ഷത്തിലേറെ പേർക്ക് കോവിഡ് വാക്സിൻ നൽകിയതായി ആരോഗ്യമന്ത്രാലയം

റിപ്പോർട്ട് ലോകാരോഗൃ സംഘടന ഇന്ന് പുറത്ത് വിടും

ഉഷ്ണ തരംഗത്തെ തുടർന്ന് കടുത്ത ചൂടിൽ ഡൽഹി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പാലക്കാട് എൻഡിഎയുടെ പ്രചാരണ യോഗത്തിൽ പങ്കെടുത്തു കേരളത്തിലെ രാഷ്ട്രീയ രംഗം വൻതോതിലുള്ളമാറ്റങ്ങളിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കടന്നു പോകുന്നതെന്നും യുഡി എഫിന്റെയും എൽഡിഎഫിന്റെയും നിരാകരിക്കുമെന്നും പ്രധാനമന്ത്രി പറ്റുള്ളൂ അഞ്ച് വർഷം മാറി മാറി ഇരുമുന്നണികളും ജനങ്ങളെ പ്പ്ച്ചിക്കുന്നതായും കേരളത്തിലെ ചെറുപ്പക്കാർ ബിജെപിയ്ക്കൊപ്പുമാണ്ണും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിന് പുറമെ തമിഴ്ക്കാട്ടൂട്ടൂട്ടിലെ ധാരാപുരത്തും പുതുച്ചേരിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോട്ടി ഇന്ന് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുപ്പൂരിൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് കോന്നിയിലും തിരുവനന്തപുരത്തും പ്രചാരണ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതി നായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി അടുത്ത മാസം രണ്ടിന് വീണ്ടും സംസ്ഥാനത്ത് എത്തും

ഐ

സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഇന്ന് കേരളത്തിലെത്തി ആലപ്പൂഴയിൽ നടന്ന റോഡ് ഷോയിൽ അവർ പങ്കെട്ടുത്തു കരുനാഗപ്പള്ളിയിലും കൊല്ലത്തും കൊട്ടാരക്കരയിലും ശ്രീമതി പ്രിയങ്കാഗാന്ധി ഇന്ന് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത് സംസാരിക്കും തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ വെഞ്ഞാറമൂട് കാട്ടാക്കട എന്നിവിടങ്ങളിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിലും അവർ പങ്കെടുക്കും തുടർന്ന് യു ഡി എഫ് നേതാക്കൾക്കൊപ്പം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ദർശനം നടത്തും

എഫ് അനുകൂല ജനവികാരമാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ന്ട്രേമിത്ത് കഴിഞ്ഞ തവണ ബിജെപി തുറന്ന അക്കൌണ്ട് ഇത്തവണ ക്കോസ് ചെയ്യുമെന്നും ബിജെപിയുടെ വോട്ട് വിഹിതം കുറയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും നന്ദിഗ്രാം മണ്ഡലത്തിൽ പ്രചാരണം തുടരുന്നു

ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് മുഖ്യമന്ത്രി എടപ്പാടി പളനിസാമിയുടെയും എ

എന്നാൽ ഡി

നേതാവ് എം

സ്റ്റാലിൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ് പ്രചാരണത്തിലുടനീളം ഉയർത്തുന്നത്

എം

ജയ്ശങ്കർ ഇന്ന് ഒൻപതാമത് ഹാർട്ട് ഓഫ് ഏഷ്യ ഇസ്താംബുൾ സമ്മേളനത്തിൽ പങ്കെടുക്കും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അദ്ദേഹം തജി കിസ്ഥാനിൽ എത്തിയത് അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് അഷ്റഫ് ഘനിയുമായി ശ്രീ എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അഫ്ഗാൻ സമാധാന ദൌതൃം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ ചർച്ച നടന്നു

പ്രകൃതി സൌന്ദരൃവും നാടൻ ജീവിതരീതി കളും മനോഹാരിത പകരുന്ന രാജസ്ഥാൻ നിരവധി വീരഗാഥകൾക്ക് വേദിയായ ഭൂമിയാണെന്ന് രാഷ്ട്രപതി ആശംസാ സന്ദേശത്തിൽ പറ ഞ്ഞു ദേശീയ വികസനത്തിന് അസീമമായ സംഭാവന നൽകിയ സംസ്ഥാനമാണ് രാജസ്ഥാനെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു അനുസ്മരിച്ചു മികച്ച സംസ്കാരത്തിന്റെയും പാരമ്പരൃത്തിന്റെയും നാടായ രാജസ്ഥാന് സർവ്വവിധ മംഗളങ്ങളും നേരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ കുറിച്ചു

എം ആർ

മഹാരാഷ്ട്ര കർണ്ണാടക പഞ്ചാബ് മധ്യപ്രദേശ് ഗുജറാത്ത് കേരളം തമിഴ്നാട് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്

എസ് നയതന്ത്ര ഊർജ്ജ പങ്കാളിത്തം നവീകരിക്കാൻ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും യു എസ്

പ്രധാനമായും ഹരി തോർജ്ജ രംഗത്തെ സഹകരണം വർദ്ധിപ്പിക്കാനും കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇരുനേതാക്കളും തമ്മിൽ ഇന്നലെ നടത്തിയ വെർച്ചൽ കൂടിക്കാഴ്ചയിലാണ് ഈ തീരുമാനം

എല്ലാ വീടുകളുിലും കുടിവെള്ളമെത്തിച്ച ആദ്യ സംസ്ഥാനം എന്ന നേട്ടം പ്രിയോവ്യ്ക്കാണ് തെലങ്കാന രണ്ടാമതും ആൻഡമാൻ നിക്കോബ്ജർ ദ്വീപുകൾ മൂന്നാമതുമാണ്

കടകളിലും ഓൺലൈനായും പുസ്തകം ലഭൃമാക്കിയിട്ടുണ്ട്

പരീക്ഷക്കാലത്തെ പിരിമുറുക്കുട് ഒഴിവാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് പുസ്തകത്തിലുള്ളത്

പുകയുടെ ഒരു പാളി തന്നെ അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടിരിക്കുകയാണ്

എസ് നാവികസേനാ ഉദ്യോഗസ്ഥകർ ജനപ്രിയ ബോളിവുഡ് ഗാനം ആലപിക്കുന്ന വീഡിയോ ആണ് അദ്ദേഹം ടിറ്ററിലൂടെ പങ്കുവച്ചത്

നേവി ബാൻഡും ടിറ്ററിൽ വീഡിയോ പങ്കുവച്ചു